ക്രിക്കറ്റ്താരം ശ്രീശാന്തിന് ബി സി സി ഐ ഏർപ്പെടുത്തിയ ആജീവനാന്ത വിലക്ക് സുപ്രീംകോടതി നീക്കി

ക്രൈസ്റ്റ് ചർച്ച് നഗരത്തിന് സമീപമുള്ള അൽനൂർ പള്ളിയിലും സൌത്ത് ഐലന്റ് സിറ്റിയിലെ പള്ളിയിലും വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെയായിരുന്നു അക്രമി വെടിവച്ചത്

ഇതുമായി ബന്ധപ്പെട്ട് നാലുപേരെ കസ്റ്റഡിയിൽ എടുത്തായും ഇവരിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതായും ന്യൂസിലാൻഡ് പൊലീസ് അറിയിച്ചു സംഭവത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തിയ ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ജസീന്ത ആർഡൻ വെടിവയ്പിനെ ശക്തമായി അപലപിച്ചു അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ട്ടീമിന്റെ ന്യൂസിലാന്റ് ടൂർ റദ്ദാക്കി

ദേശീയ ദുരന്തനിവാരണ സേന സംഭവ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി

സംഭവത്തിൽ മഹാരാഷ്ട്ര ഗവൺമെന്റ് അന്വേഷണത്തിന് ഉത്തരവിട്ടു എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നവിസ് മാധ്യമങ്ങളോട് പറഞ്ഞു

കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി എടുക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി

സംസ്ഥാന ബി ജെ പി അധൃക്ഷൻ ഭൂപേന്ദ്രയാദവിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ മൂന്നംഗ ്തെരഞ്ഞെടുപ്പ് നിർവ്വാഹക സംഘത്തിന്റെ യോഗത്തിലാണ് തീരുമാനം ഇന്നലെ പട്നയിലാണ് യോഗം നടന്നത് സ്ഥാനാർത്ഥികളുടെ പട്ടിക ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് ശ്രീ യാദവ് പറഞ്ഞു

ആഗ്ന്ധാപ്രദേശ് മുഖ്യമന്ത്രിയും ടി ഡി പി അധ്യക്ഷനുമായ എൻ ചന്ദ്രബാബു നായിഡു അദ്ദേഹത്തിന്റെ മകൻ നരാലോകേഷ് എന്നിവർ ഉൾപ്പെട്ട ആദ്യ പട്ടിക ഇന്നലെ രാത്രി ഹൈദരാബാദിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ തെലുങ്കുദേശം പാർട്ടി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു തന്നെയാണ് പരസ്യപ്പെടുത്തിയത് ഏഴാം തവണയാണ് ശ്രീ നായിഡു സ്വദേശമായ ചിറ്റൂർ ജില്ലയിലെ കുപ്പത്ത് നിന്ന് മത്സരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടികയും ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു

ഹൈദരാബാദിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി എസ് സുധാകരറെഡ്ഡി അറിയിച്ചതാണിത്

ചില സംസ്ഥാനങ്ങളിൽ പ്രാദേശിക കക്ഷ്മീകളുമായി സി

ഐ ധാരണയുണ്ടാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു

ജെ

സംസ്ഥാന ഘടകം സമർപ്പിച്ച ചുരുക്കപ്പട്ടിക വിലയിരുത്തിയായിരിക്കും കേന്ദ്ര നേതൃത്വം സ്ഥാനാർത്ഥികളെ അന്തിമമായി പ്രഖ്യാപിക്കുക

ശ്രീധരൻപിള്ളയും കുമ്മനം രാജശേഖരനുമടക്കം നേതാക്കൾ കേന്ദ്ര നേതൃത്വവുമായി ചർച്ചയ്ക്ക് നാളെ ഡൽഹിയിലെത്തും

വി പാറ്റ് സ്ലിപ്പുകളും എണ്ണണമെന്ന ചില രാഷ്ട്രീയ കക്ഷികളുടെ ഹർജിയിൻമേൽ സുപ്രീംകോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിലപാട് അറിയിക്കാൻ ആവശ്യപ്പെട്ടു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബഞ്ചാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്

കഴിഞ്ഞ വർഷം ജനുവരിയിൽ അവതരിപ്പിച്ച ഇലക്ട്രൽ ബോണ്ടുകൾക്കെതിരെ സി

പാർട്ടിക്ക് ലഭിക്കുന്ന ബോണ്ടുകളെ അംഗീകൃത ബാങ്ക് അക്കൌണ്ടുകൾ വഴി മാത്രമേ അവർക്ക് പണമാക്കി മാറ്റാനാകൂ എന്നും സത്യവാങ്മൂലം പറയുന്നു

സിബിഐ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നിലപാട് അറിയിക്കാൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധൃക്ഷനായ ബെഞ്ച് ആവശ്യപ്പെട്ടു ഈ കേസുകളിൽ ഝാർഖണ്ഡ് ഹൈക്കോടതി ലാലുവിന് ജനുവരിയിൽ ജാമ്യം നിഷേധിച്ചിരുന്നു നിലവിൽ റാഞ്ചിയിലെ ബിർസമുണ്ട ജയിലിൽ കഴിയുകയാണ് ലാലുപ്രസാദ് യാദവ്

ശാസ്ത്ര സാങ്കേതിക വകുപ്പും ദേശീയ നൂതന ആശയ ഫൌണ്ടേഷനുമാണ് മേളയ്ക്ക് നേതൃത്വം നൽകുന്നത്

ഇടപാടിലെ പണം തട്ടിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഗൂഡാലോചനയും പുറത്തുകൊണ്ടു്വര്ാൻ തൽവാറിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടേണ്ടതുള്ളണ്ട്ന്ന് സ്പെഷ്യൽ പബ്ലിക്ക് പ്രോസിക്യൂട്ടർമാർ കോടത്തിയെ അറിയിച്ചു

സംഭവത്തിൽ അന്വേഷണം നടന്നുവരികയാണ്

ശിക്ഷാ കാല്യളവ് മൂന്ന് മാസത്തിനകം ബി സി സി ഐ പുനഃപരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി